ശ്രമങ്ങൾ വീണ്ടും ഊർജ്ജിതമായി

ജെ

ഡൽഹിയിലെ വായു മലിനീകരണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്ത്ർവാദിത്തം അധികാരികൾക്കാണ്ണെന്ന് സുപ്രീം കോടതി

കൂടുതൽ വിവരങ്ങളുമായി എസ്

ജെ

ശിവസേന നേതാക്ക്ളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് എൻസി

നില്പ്പിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തിയതായി ശ്രീ റൌട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ഗവൺമെന്റ് രൂപീകരിക്കാൻ എൻ സി

ഇല്ലെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായി ശ്രീ

മുതിർന്ന ബി ജെ

നേതാവ് സുധീർ മുങ്കന്തിവാറും സംസ്ഥാന ബി ജെ

അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീലും നാളെ ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയുമായി കൂടിക്കാഴ്ച നടത്തും

ജെ

ശിവസേന സഖ്യത്തിൽ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി ഉറപ്പുവരുത്തുന്നതായി ബി ജെ

കോർ കമ്മിറ്റി മീറ്റിംഗിനു ശേഷം ശ്രീ

മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ശിവസേന അധ്യക്ഷൻ ഉദ്ദവ് താക്കറെ തങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഹുറിയത്ത് ക്ലോൺഫെറൻസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി കൊണ്ട് ദേശീയോദ്ഗ്രഥന് കൌൺസിലിന്റെ അടിയന്തര യോഗം ചേരണമെന്ന് പ്രൊഫസർ സ്നിംഗ് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് അഞ്ചിനോ അതിനുശേഷമോ തടവിലാക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ അടിയന്ത്രമായി മോചിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ഭരണകർത്താക്കൾക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബഞ്ച് വ്യക്തമാക്കി

കർഷകരിൽ നിന്നും വൈക്കോൽ സംസ്ഥാന ഗവൺമെന്റുകൾ ശേഖരിക്കാത്തത് എന്താണെന്നും കോടതി ചോദിച്ചു കോടികണക്കിന് ആൾക്കാരുടെ ജീവന്റെ പ്രശ്നമാണിതെന്നും ഗവൺമെന്റിനാണ് ഇതിന്റെ ഉത്തരവാദിത്തമെന്നും പരമോന്നത കോടതി വൃക്തമാക്കി

സമത്വത്തിലധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ശ്രീ ഗുരുനാനാക്ക് ദേവ്ജിക്ക് ഉണ്ടായിരുന്നതെന്ന് ഉപരാഷ്ട്രപ്പതി പറഞ്ഞു ജാതിയുടേയും മതത്തിന്റേയും വർണത്തിന്റേയും പേരിലുള്ള വിവേചനം ഗുരുവിനെ സംബന്ധിച്ച് അപ്രസക്തമായ കാര്യമായിരുന്നു ജാതിരഹിതമായ സമൂഹത്തെ വാർത്തെടുക്കുകയായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം ഉച്ചനീചത്വങ്ങളോ ചൂഷണമോ ഇല്ലാത്ത് സമത്വസുന്ദരമായ് സമൂഹമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്

ലോകത്ത് സമാധാനവും സ്ഥിരതയും ആശയങ്ങളും സൌഹാർദ്ദവും വ്യാപനം ചെയ്യുന്നതിന് ഇത്തരം ആത്മീയ ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ടെന്നും ഉപർാഷ്ട്രപതി പറഞ്ഞു

മൻമോഹൻസിംഗ് ഹരിയാന ഗവർണർ സത്യദേവ് നാരായൺ ആര്യ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അർമീന്ദർ സിംഗ് പഞ്ചാബ് ഗവർണർ വി

സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു

ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുന്നതോടെ അടുത്ത രണ്ടു ദിവസം ഗുജറാത്ത് സൌരാഷ്ട്ര മേഖലയിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്

ശനി ഞായർ ദിവസങ്ങളിൽ ഒഡീഷയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

മറ്റന്നാൾ നടക്കുന്ന് സമാപന സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷ്യം അധ്യക്ഷത വഹിക്കും

കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ സഹമന്ത്രിമാരായ പ്രഹ്ലാദ് പട്ടേൽ രാമേശ്വർ തെലി അനുരാഗ് താക്കൂർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും

ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നവോത്ഥാനമൂല്യങ്ങൾ പിന്തുടരുന്നതിൽ മുൻതലമുറയുടെ പ്രവർത്തനം അതേരീതിയിൽ മുന്നോട്ടു കൊണ്ടു പോകാനായോ എന്ന് സ്വയം വിമർശനപരമായി പരിശോധിക്കണമെന്നും ശ്രീ

അംഗീകാരം നേടിയെടുക്കുക എന്നു ലിക്ഷ്യ്തോടെയാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്നും ശ്രീമൃതി ർശെലജ വ്യക്തമാക്കി

ന്യൂഡൽഹിയിൽ ഊർജ്ജ സമ്മേളനത്തെ അഭിസംബോധന ഊൌർജ്ജ ഉപഭോഗത്തിൽ രാജ്യത്തിന്റെതായ മാതൃക സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു

അടുത്തവർഷം മേയിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് നീരവ് മോദി പുതിയ ജാമ്യാപേക്ഷയുമായി ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്